ഗവണ്മെന്റ് പൂദ്ധ്യതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ യുവ ഉദ്യോഗസ്മാരുടെ കൂട്ടായ പരിശ്രമം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥതയുടെ സാധ്യത തള്ളി വിദേശകാര്യമന്ത്രി എസ്

ആയുഷ്മാൻ പദ്ധതി ഒരു വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ആരോഗ്യ അതോറിട്ടിയാണ് രണ്ടു ദിവസത്തെ ആരോഗ്യ മൻതൻ പരിപാടി സംഘടിപ്പിച്ചത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി

ഡിഫൻസ് അക്കൌണ്ട്സ് ദിനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നും രക്ഷാമന്ത്രി മന്ത്രി രക്ഷാമന്ത്രി ശ്രേഷ്ഠ പുരസ്കാരിച്ചും ് ചടങ്ങിൽ അദ്ദേഹം വിതരണം ചെയ്തു

ന്യൂഡൽഹിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ ആശയങ്ങളും പുതിയ വീക്ഷണവും കൊണ്ടു വരാൻ യുവ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സേവനത്തിനാകണം സിവിൽ സർവ്വീസ് ഉദ്യോഗസ്ഥരുടെ പ്രഥമ പരിഗണനയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

കൊൽക്കത്തയിൽ ബി ജെ

സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് അഭയാർത്ഥികളായിട്ടുള്ള് ഹിന്ദു സിഖ് ക്രിസ്ത്യൻജെയിൻ മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതിയായിരിക്കും ഉണ്ടാവുകയെന്നും അദ്ദേഷ്ട് പറഞ്ഞു

സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി ജസ്റ്റിസുമാരായ അരുൺമിശ്ര എം

ഷാ ബി

സമത്വത്തിനും പൌരാവകാശങ്ങൾക്കുമായുള്ള പട്ടികജാതി പട്ടികവർഗക്കാരുടെ പോരാട്ടം ഇന്നും അവസാനിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിധി റദ്ദ് ചെയ്തത് ദളിതരോടുള്ള വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു

വിഷയത്തിൽ പുതുതായി ഹർജിസമർപ്പിക്കുന്നത് സുപ്രീംകോടതി വിലക്കി

നവരാത്രി ഉത്സവത്തിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഇത്രയധികഠ ഭക്ത ജനത്തിരക്കുണ്ടായിരിക്കുന്നതെന്ന് റയ്സായ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദു കൻവാൾ ആകാശവാണിയോട് പറഞ്ഞു

ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്താസ്റ്റിക്കിന്റെ ഉപയോഗം നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ സബർമതി ആശ്രമ പരിസരത്ത് നിന്ന് പ്ലാസ്റ്റിക്ക് നീക്കം ചെയ്യുന്ന ശുചീകരണ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കേരളത്തിൽ വിവിധ വകുപ്പുകളും സംഘടനകളും സ്ഥാപനങ്ങളും വിപുലമായ ഗാന്ധിജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മദ്ധ്യപ്രദേശിൽ നാളെ മുതൽ ഒക്ടോബർ ആറു വരെയാണ് ഗാന്ധിജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തിന് ഗാന്ധിജി നല്കിയ സംഭാവനകൾ സ്മരിക്കുന്ന വിവിധ പരിപാടികൾ ഈ ദിവസങ്ങളിൽ നടക്കും പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലും വിപുലമായ ഗാന്ധി അനുസ്മരണ പരിപാടികൾ നടത്തുന്നുണ്ട് ഹരിയാനയിലെ പൽവാലിൽ സൌഹാർദ്ദ പരിപാടി നടത്തും ഉത്തർപ്രദേശിൽ ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ പത്തു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയ്യൂട്ട്ട് സാഹിത്യ രചനകൾ വായിച്ചു കേൾപ്പിക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

കേന്ദ്ര മന്ത്രിമാരായ പ്രകാശ് ജാവദേക്കറും ആർ

സോളാർ പഠന വിളക്കുകൾ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന പ്രായോഗിക പരിശീലനം അസംബ്ലിയിൽ വച്ച് വിദ്യാർത്ഥികൾക്ക് നൽകും ഊർജ്ജ സുസ്ഥിരതയെ കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചും യുവ മനസ്സുകളെ ബോധവത്ക്കരിക്കുകയാണ് സോളാർ അസംബ്ലിയുടെ ലക്ഷ്യം

കാശ്മീരിനെ സംബന്ധിച്ച് ഇന്തൃയ്ക്കും പാകിസ്ഥാനും ഉഭയകക്ഷികൾ ചർച്ചയാകാമെന്നും മന്ത്രി പറഞ്ഞു വാഷിംഗ്ടണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി

ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്

ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വനം പരിന്മ്മിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ സിവിൽ വ്യോമയാന മന്ത്രി ഹ്ർദ്ദീപ് സിംഗ് പുരി എന്നിവരുമായാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്

സ്വർണ്ണവില കുറഞ്ഞു